കോവിഡ് പരിശോധനയ്ക്ക് ഐ

എം

കൃഷ്ണന് ശ്രദ്ധാഞ്ജലി അധ്യാപക സമൂഹത്തിന് ആശംസകൾ നേർന്ന് രാഷ്ട്രനേതാക്കൾ

വിദേശമന്ത്രിമാരുടെ വെർച്ചൽ യോഗത്തിലാണ് ഇന്ത്യ ഈ ആവശ്യമുന്നയിച്ചത്

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിലും വർധിക്കുന്ന ആക്രമണങ്ങളിലും ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു പ്രദേശികവും ആഗോളവും ആയ തലങ്ങളിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാണ് ഇതെന്ന് ബ്രിക്സ് യോഗം അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ സംഭാഷണങ്ങളി ലൂടെയും നയതന്ത്ര ഇടപെടലി്ലൂടെയും ഇത്തരം പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്ന് ില്ലബസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്ട്ട്ടിട്ടുള്ളുടെ വിദേശമന്ത്രിമാർ ആവശ്യപ്പെട്ടു

ഭീകരതയെ ചെറുക്കാനുള്ള ആഗ്നോള് പരിശ്രമങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ബ്രിക്സ് ആംഗരാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി അതത് രാജ്യങ്ങൾക്കാണ് ഭീകരതക്കെതിരായ പോരാട്ടത്തിൽ പ്രധാന ഉത്തരവാദിത്തമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദക്ഷിണാ പ്രിക്കയുടെയും പങ്കിന്റെ പ്രധാന്യം ചൈനയും ് റഷ്യയും ആവർത്തിച്ച് വ്യക്തമാക്കി ് ഭീകരതയെ നേരിടാൻ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അക്രമണാത്മക ചൈനയിൽ നിന്ന് വ്യാപാര മാർഗ്ഗങ്ങൾ സുരക്ഷിതമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇൌ നീക്കം ഫ്രാൻസിന് ശേഷം ക്ലബിൽ അംഗമാകുന്ന രണ്ടാമത്തെ യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ എന്നീ രാജ്യങ്ങൾ രൂപീകരിക്കുന്ന വ്യാപാര വാണിജ്യ പശ്ചാത്തല ത്തിന് ജർമ്മനിയുടെ നീക്കം മികച്ച പിന്തുണ ലഭ്യമാക്കും

ഇന്ത്യയിലേക്കും ് ബംഗ്ലാദേശിലേക്കും ആസിയൻ രാജ്യങ്ങളിലേക്കും മാറ്റി സ്ഥാപിക്കുന്നു ജപ്പാൻ കമ്പനികൾക്ക് സബ്സിഡി നൽകുമെന്ന് ജപ്പാൻ ക്യപ്പ്ൺമെന്റ് വൃക്തമാക്കി ഇതിനായി ജപ്പാൻ ബജറ്റിൽ ചൈനയിൽ നിന്നുടലെടുത്ത കോപ്പിഡ് മഹാമാരി ലോക വിനിമയ ശൃംഗലയെത്തന്നെ തടസപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്പാന്റെ നീക്കം പല രാജ്യങ്ങളും ചൈനയുമായുള്ള വ്യാപാര ബന്ധം ്പാടേ നിർത്തുന്നതിന്നോ കുറയ്ക്കുന്നതിനോ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നട്ടത്തുന്നതിനിടെയാണ് ജപ്പാന്റെ പുതിയ തീരുമാനം അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ചൈനീസ് നീക്കത്തിനെതിരെ പ്രതികരിച്ച് ആസിയൻ രാജൃങ്ങളും ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും യുഎസും രംഗത്തു വന്നിരുന്നു

ഇതനുസരിച്ച് വൃക്തികൾക്ക് അവരുടെ ആവശ്യപ്രകാരം ടെസ്റ്റുകൾ നടത്താൻ അനുവാദം നൽകി വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിൽനിന്നും വരുന്നവർക്ക് അതത് സംസ്ഥാനത്തിന്റെ പ്രവേശനസ്ഥലത്തുതന്നെ ആവശ്യാനുസരണം കോവിഡ് പരിശോധന നടത്തണം

കണ്ടയ്ൻമെന്റ് സോണിലുള്ള എല്ലാവരെയും ആന്റിജൻ ടെസ്റ്റിന് വിധേയരാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് നഗരങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണിത് വിദേശ യാത്ര നടത്തിയവരെ രോഗലക്ഷണം പ്രകടിപ്പിച്ചാൽ നിർബന്ധമായും പരിശോധനക്ക് വിധേയമാക്കണം പ്രസവത്തിനായി ആശ്രുഷ്ട്രതിയിൽ പ്രവേശിപ്പിക്ക പ്പെട്ടവർ ശസ്ത്രക്രിയക്കും മറ്റുമായി ആൾട്ട്പത്രിയിൽ എത്തുന്നവർ എന്നിവരെയും പരിശോധിക്കണം

മൂന്നാംഘട്ട പരീക്ഷണങ്ങൾ സാവധാനം നടത്തിയാലേ ഫലപ്രാപ്തിയുള്ള വാക്സിൻ തയ്യാറാക്കാൻ കഴിയൂ പരീക്ഷണത്തിലെ വിവരങ്ങൾ പരസ്പരം കൈമാറുകയും താരതമ്യം ചെയ്യുകയും വേണം നിരവധി ആളുകൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇവയൊന്നും കൃത്യമായ ഫലം തരുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്ന് മാർഗരറ്റ് പറഞ്ഞു

ഒയും ഗാവി വാക്സിൻ അലൈൻസും ചേർന്ന് കോവാക്സിൻ നിർമിക്കുന്നുണ്ട്

എല്ലാ രാജ്യ ങ്ങൾക്കും തുല്യമായി നൽകാനാണ് ലക്ഷ്യമിടുന്നത്

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ അധ്യാപക അവാർഡുകൾ രാഷ്ട്രപതി ഓൺലൈനായി സമ്മാനിച്ചു

രാധാകൃഷ്ണന് അദ്ദേഹത്തിന്റെ ജൻമ വാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു സ്മരണാഞ്ജലി അർപ്പിച്ചു അദ്ധ്യാപകൻ തത്തചിന്തകൻ പണ്ഡിതൻ രാഷ്ട്രത്ത്തജ്ഞൻ എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം പ്രഗത്ഭനായിരുന്നു ഡോ

അദ്ദേഹത്തിന്റെ ജീവിതം പ്രവർത്തനം എന്നിവ ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാകുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു അധ്യാപക ദിനത്തിൽ ശ്രീ

പകർച്ചവ്യാധിയുടെ പ്രയാസത്തിനിടയിലും വിദ്യാർഥികൾക്കായി അശ്രാന്തം പരിശ്രമിച്ച എല്ലാ അധ്യാപകർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു അവരുടെ ആത്മ സമർപ്പണത്തിനും നിസ്വാർത്ഥ സേവനത്തിനും അദ്ദേഹം നന്ദി അർപ്പിച്ചു

നല്ല മനുഷ്യരെ രൂപപ്പെടുത്തുന്നതിലും രാഷ്ട്രനിർമാണ്ത്തിലും കഠിനാധാനികളായ അധ്യാപകരോട് രാജ്യം കടപ്പ്പെട്ടിരിക്കുന്നുവെന്ന് ശ്രീ മോദി ട്വീറ്റിൽ കുറിച്ചു

രാധാകൃഷ്ണന്റെ ജന്മവാർഷിക ദിനീത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ശ്രദ്ധാജ്ഞലിയർപ്പിച്ചു

ഈ ആധുനിക കേരളത്തിലേയ്ക്ക് നമ്മളെ നയിച്ചതിൽ അധ്യാപക സമൂഹത്തിന് നിർണായകമായ പങ്കുണ്ട്

ഈ അദ്ധ്യാപക ദിനത്തിൽ അദ്ധ്യാപക സമൂഹത്തോട് നമുക്ക് നന്ദി പറയാം കൂടുതൽ പ്രചോദിതരായി ഈ നാടിനു വേണ്ടി കൂടുതൽ കരുത്തോടെ അദ്ധ്യാപകർക്ക് മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

അറിവിന്റെ എല്ലാ സ്രോതസുകളിലേക്കും കുട്ടിയെ നയിക്കാനും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വിജയിപ്പിക്കാനും അധ്യാപകന് കഴിയണമെന്ന് അദ്ദേഹം അധ്യാപക ദിന സന്ദേശത്തിൽ പറഞ്ഞു

വിളനാശം തകർന്ന വീടുകളും റോഡുകളും മറ്റ് നാശനഷ്ടങ്ങൾ എന്നിവ വ്യക്തമാക്കിയാണ് പ്രസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം നൽകിയത്

ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കൊഹിമയിലെ മെഡിക്കൽ കോളേജിന് പുറമെയാണിത് മോൺ ജില്ലാ ആശുപത്രിയെ നവീകരിച്ചാണ് പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതെന്ന് നാഗാലാൻഡ് സർക്കാർ വ്യക്തമാക്കി